വികസന യാത്രയിൽ ഗുണഫലങ്ങൾ ലഭിക്കാതെ പോയവരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വഴി കട ത്തുന്നതിന് സഹായിക്കാൻ ഗവർണർമാർക്ക് കഴിയുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

സംസ്ഥാനത്ത് നിപ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാണെന്നും നിപ്പ ബാധിതരൂടെ ചികിത്സാ ചെലവ് ഗവൺമെന്റ് തിരിച്ച് നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

രാജ്യത്തെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഭരണഘടനയുടെ അഞ്ചും ആറും പട്ടികയുടെ കീഴിൽ വരുന്ന മേഖലകളിലാണ് അധിവസിക്കുന്നത് ഭരണനിർവഹണത്തിൽ ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഗവർണർക്കുള്ളത്

ഇതിന്റെയെല്ലാം ചാൻസലർമാർ ഗവർണർമാരാണ് വിദ്യാർത്ഥികളുടെ പ്രവേശനവും അധ്യാപക നിയമനവുമെല്ലാം സുതാര്യമായും സമയബന്ധിതമായും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഗവർണർമാർക്ക് കഴിയുമെന്നും ശ്രീ കോവിന്ദ് പറഞ്ഞു പരീക്ഷകളും ഫലപ്രഖ്യാപനവും ബിരുദദാനവുമെല്ലാം കൃത്യസമയത്ത് നടക്കുന്നതായി ഉറപ്പാക്കാനും ഗവർണർമാർക്ക് കഴിയും

രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ പരമപ്രധാനമായ പങ്കാണ് ഗവർണർമാർക്ക് നിർവഹിക്കാനുള്ളതെന്ന് തദവസരത്തിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിവിധ വികസനപദ്ധതികളുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന തരത്തിൽ ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കാൻ ഗവർണർമാർക്ക് കഴിയുമെന്നും ശ്രീ മോദി പറഞ്ഞു ഗിരിവർഗ്ഗ ജനവിഭാഗങ്ങൾ കൂടുതലുളള സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസം കായികം സാമ്പത്തിക ഉന്നമനപദ്ധതികൾ എന്നിവയുടെ പ്രയോജനം അവർക്ക് ലഭിക്കുന്നു ന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു

ഒരു ബസ് ജിവനക്കാരൻ ആക്രമിക്കപ്പെട്ടതായ ആരോപണത്തെത്തുടർന്ന് കഴിഞ്ഞ വ്യാഴ്ച്ചയാണ് അക്രമസംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്

സമാധാനം പുനസ്ഥാപിക്കാൻ സാധ്യമായ നടപടികളെല്ലാം ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണെന്ന് മേഘാലയ ആഭൃന്തരമന്ത്രി ജയിംസ് സാംഗ്മ പറഞ്ഞു

സ്ഥിരം സുരക്ഷ റോന്തിനിടെ റോഡരികിൽ അജ്ഞാതരായ തീവ്രവാദികൾ സ്ഥാപിച്ച സ്ഫോടക വസ്തു ക െ ത്തുകയായിരുന്നുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു പിന്നീട് ബോംബ് സ്കാഡ് എത്തി ഇത് നിർവീര്യമാക്കി

മൊറാദാബാദിൽ നിന്നാണ് കൂടുതൽ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് ആകാശവാണി പ്രതിനിധി അറിയിച്ചു മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് പ്രാദേശിക ഭരണകൂടം സാമ്പത്തിക സഹായം വിതരണം ചെയ്തു പല ജില്ലകളിലും വാർത്താ വിനിമയ സംവിധാനങ്ങളും വൈദ്യുതി വിതരണ സംവിധാനവും പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല

ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടുങ്ങളോട് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടു ്

കേന്ദ്രം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്

നിപ വൈറസ് മറ്റു മേഖലകളിലേയ്ക്ക് പടരാതെ മുൻകരുതലെടുത്തിട്ടു ന്നും മന്ത്രി അറിയിച്ചു

ഇപ്പോൾ ആശങ്കപ്പെടേ സാഹചര്യമില്ലെങ്കിലും ജാഗ്രത തുടരണ്മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർവകക്ഷിയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിപ വൈറസിന്റെ ചികിത്സാ ചെലവ് ബ്സ്ട്പ്പെട്ട കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് തിരിച്ച് നൽകും കളക്ടർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്പണം നൽകുന്നത് സംബന്ധിച്ച് നടപടിയെടുക്കുക നാളെ മുതൽ നിപ ബാധിച്ച കുടുംബങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ്വിതരണം ചെയ്ത് തുടങ്ങും അതേസമയം നിപായൂമായി ബന്ധപ്പെട്ട വ്യാജപ്രചാരണം നടത്തുന്നവരെ ഒറ്റപ്പെട്ടുത്തൂമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഭക്ഷൃ സംസ്കരണ വ്യവസായ രംഗം നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിക്കാനാണ് പുതിയ സാമ്പത്തിക സ്ഥാപനം രൂപീകരിക്കുന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഹർസിമ്രത് കൌർ ബാദൽ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം

ഭക്ഷ്യ വസ്തുക്കൾ കേടാകാതെ സൂക്ഷിക്കാൻ ഇതു വഴി കഴിയുമെന്നു മന്ത്രി പറഞ്ഞു ഭക്ഷ്യ സംസ്ക്കരണ മേഖല രാജ്യത്തിന്റെ സാമ്പത്തിക ചർച്ചയിൽ സുപ്രധാനമാണ്

പോലീസുദ്യോഗസ്ഥരെ ലക്ഷ്യം വച്ച് എറിഞ്ഞ ഗ്രനേഡ് ലക്ഷ്യം തെറ്റി റോഡുവക്കിൽ വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ശ്രീനഗർ ആശുപത്രിയിലും മറ്റുള്ളവരെ പ്രദേശത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടു ് ആക്രമണം നടത്തിയ ഭീകരെക്കുറിച്ചുള്ള വിവരങ്ങൾ ് ലഭിച്ചിട്ടില്ല

മതപുരോഹിതർ സമ്മേളിച്ചിരുന്ന കൂടാരത്തിലേക്കാണ് ബോംബേറു ായതെന്ന് പോലീസ് വക്താവ് ഹഷ്മത് സ്റ്റാനിക്സായി പറഞ്ഞു മതപണ്ഡിതന്മാർ സമ്മേളനസ്ഥലത്തു ായിരുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടു ചെയ്യുന്നു മരണസംഖ്യ ഉയ്രാൻ ഇടയുടെ ന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് നജീബ് ഡാനിഷ് അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല

മറ്റുള്ളവരിൽ നാലു പേർ കോൺഗ്രസും ര ു പേർ ജനതാദൾ സെക്കുലറുമാണ്